പ്രധാന നിരക്കുകളിൽ മാ്റ്റമില്ല

വെസ്റ്റൻഡീസിന് ബാറ്റിംഗ് തകർച്ച

വ്ളാഡിമർ പുടിനും തമ്മിൽ ന്യൂഡൽഹിയിൽ നടന്ന പ്രതിനിധിതല ചർച്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്

തീവ്രവാദ ഒരു പ്രവർത്തനവും ഇരു രാജ്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒപ്പം ലോക തീവ്രവാദം കൂട്ടുത്തരവാദിത്വത്തോടെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലൂടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും

അഫ്ഗാനിസ്ഥാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാനം പുനസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇരുരാജ്യങ്ങളും തങ്ങളുടെ സഹകരണം പ്രഖ്യാപിച്ചു ന്യൂസ്ഡസ്ക് ആകാശവാണി

റഷ്യൻ പ്രസിഡന്റ് പ്പ്ള്ളാഡിമിർ പുടിനുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചിൿൾക്ക് ശേഷം ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസന കാര്യത്തിൽ റഷ്യ ഇന്ത്യയോടൊപ്പമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് ശേഷം റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു തന്ത്രപരമായ ഒട്ടേറെ ബന്ധങ്ങൾ ഇരുരാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നതായും ഇരു രാജൃങ്ങൾക്കും സാംസ്കാരിക രംഗത്ത് താല്പര്യമുള്ളതായും പ്രധാനമന്ത്രി പറഞ്ഞു

സുപ്രധാന നിരക്കുകളിൽ മാറ്റമില്ല

പളനിസാമി പ്രധാനമന്ത്രിയ്ക്കയച്ച കത്തിൽ ആവശ്യപ്പെട്ടു ദുബായിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട ഇവരെ സെപ്തംബർ ഒന്നിനാണ് കടൽ അതിർത്തി ലംഘിച്ചതായി ആരോപിച്ച് കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്തത് ഒരുമാസത്തിലേറെയായി ഇവരെ കിഷ് ദ്വീപിലെത്തിച്ച് ബോട്ടിൽ തന്നെ പാർപ്പിച്ചിരിക്കുകയാണ് ഇറാനിയൻ അധികൃതർ ഇവർക്ക് വേണ്ട ഭക്ഷണവും അവശ്യസാധനങ്ങളും ബോട്ടിൽ തീർന്നു കൊണ്ടിരിക്കുകയാണ്

അതിനാൽ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ട് ഇവരെ എത്രയും വേഗം എത്തിക്കണമെന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ആവശ്യം

കനത്ത മഴയ്ക്ക് കാരണമാകുന്ന ന്യൂനമർദ്ദം അറേബ്യൻ സമുദ്രത്തിൽ രൂപപ്പെട്ടതായും കേന്ദ്രം അറിയിച്ചു കേരളത്തിനും ലക്ഷദ്വീപിനും സമീപത്തായി രൂപംകൊണ്ട ന്യൂനമർദ്ദം മിനിക്കോയ് ദ്വീപിന്റെ വടക്ക് പ്രിട്ടിഞ്ഞാറ് ഭാഗത്തിലൂടെ ഒമാൻ തീരത്തേക്ക് ശക്തിപ്രാപിച്ച് നീങ്ങുക്യാണ്

വിവിധ ജില്ലകളിൽ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് തമിഴ്നാട്ടിലും പുതുശ്ശേരിയിലും മഴ ശക്തമായി തുടരുന്നു

കനത്തമഴയെ നേരിടാൻ മുഖ്യമന്ത്രി എടപ്പാടി കെ പളനിസാമി ക്യാബിനെറ്റ് അംഗങ്ങളുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തി മിക്ക ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്

മുഖ്യമന്ത്രി ജയ്റാം താക്കൂറും ചടങ്ങിൽ പങ്കെടുത്തു

കേന്ദ്രഗവണ്മെന്റ് മുൻകാലങ്ങളിൽ ചില പ്രത്യേക് മേഖലകളുടെ വികസനത്തിലാണ് ശ്രദ്ധകേന്ദ്രീകരിച്ചിരുന്നത്

എന്നാൽ പ്രധാൻമന്ത്രി ജൻവികാസ് കാര്യക്രം രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ദുർബലവിഭാഗങ്ങളുടെയും ഉന്നമനത്തിന് ഒരു നാഴികകല്ലാണെന്ന് തെളിയിച്ചിരിക്കുന്നതായി ശ്രീ നഖ്വി പറഞ്ഞു

കേസ് അന്വേഷിക്കുന്ന ജമ്മുകശ്മീർ പൊലീസ് ക്രൈംബ്രാഞ്ച് ഒരു ബാലനും മറ്റ് ഏഴുപേർക്കുമെതിരെ പ്രധാന കുറ്റപത്രം നല്കി കഴിഞ്ഞു

യുദ്ധ മേഖലകളിലെ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് കൊംഗോയിൽ നിന്നുള്ള ഡോ

ഭീകരർ തട്ടിക്കൊണ്ടു പോയി പീഡനങ്ങൾക്കിരയാക്കിയിരുന്നു

സുരക്ഷാ ആവശ്യങ്ങൾക്കായി ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ കൂടുതലായി ആവശ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ മൂന്നു ദിവസത്തെ അന്തർദേശീയ സുരക്ഷാ എക്സ്പോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ അന്തസ്റ്റ് കെടുത്തുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ തടയുന്നതിനും സമാധാനം ഉറപ്പുവരുത്തുന്നതിനും ഗവണ്മെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു

ശാസ്ത്രീയ മാർഗത്തിലൂടെ രാജ്യത്തെ ്ളട്ടൂമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകുമെന്നും ക്ക്രിന്ദ ശാസ്ത്രസാങ്കേതിക മന്ത്രി ഡോ

ശാസ്ത്രജ്ഞർ ശാസ്ത്ര അദ്ധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ശാസ്ത്രമേള നാളെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും

ഓഗ ശ്രീനഗർ മേഖലയിൽ ഇന്ന് ഉച്ചയ്ക്കായിരുന്നു അജ്ഞാതരായ തീവ്രവാദികൾ പാർട്ടി പ്രവർത്തകർക്കു നേരെ ആക്രമണം അഴിച്ചുവിട്ടത് ഒരാൾക്ക് പരിക്കേറ്റു

വൈറ്റ്ഹൌസ് ഇന്നലെ പുറത്തിറ്ക്കിയ ദേശീയ ഭീകര വിരുദ്ധ നയത്തിൽ കൂടുതൽ പൂട്ടീക്ക്ര സംഘടനകൾ പ്രാദേശികമായി തീവ്രവാദ പ്രചാരണം കൃഷ്ടത്തുന്നതായും വിദേശത്തുള്ള യു

പൌരന്മാർക്ക് ഭീഷണിയായി നില കൊള്ളുന്നതായും അറിയിച്ചു

ക്യാപ്ടൻ വിരാട് കോഹ്ലി ടെസ്റ്റിൽ കന്നി സെഞ്ചുറി നേടിയ രവീന്ദ്ര ജഡേജ എന്നിവരുടെ മിന്നുന്ന പ്രകടനത്തിന്റെ പിൻബലത്തിലാണ് ഇന്ത്യ കൂറ്റൻ സ്കോർ നേടിയത് ഒന്നാം ദിനമായ ഇന്നലെ കന്നി മത്സരത്തിനിറങ്ങിയ പൃഥ്വി ഷായും ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടിയിരുന്നു മറുപടി ബാറ്റിംഗിനിറങ്ങിയ വെസ്റ്റിൻഡിസിന് ബാറ്റിംഗ് തകർച്ച

അസം വന്റ്മീ്പ്തി പരിമൾ ശുക്ല വൈദ്യ ചീഫ് സെക്രട്ടറി അലോക് കുമാർ എന്നിവരുമായി സംഘം ഗുവാഹത്തിൽ കൂടിക്കാഴ്ച നടത്തി